അടുത്ത അഞ്ച് വർഷം സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കാൻ കേരള ജനത നാളെ വിധിയെഴുതും സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിൽ

തമിഴ്നാടും പുതുച്ചേരിയും നാള്ള് പോളിംഗ് ബൂത്തിലേക്ക് അസമിലും പശ്ചിമബംഗാളിലും മൂന്നാം ഘട്ട വിധിയെഴുത്തും നാളെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച ഈ മാസം ഏഴിന്

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ് ആക്രമണത്തിൽ വീരമൃത്യുവരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു

ഇന്ന് വീടുകൾ കയറിയുള്ള നിശബ്ദ പ്രചാരണമാണ് മുന്നണികൾ നടത്തുന്നത്

ഇരട്ട വോട്ടുകൾ ഒഴിവാക്കാൻ കർശന നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും സുരക്ഷാ സംവിധാനം കർശനമായിരിക്കും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനൊപ്പം നടക്കും കോവിഡ് മാനദണ്ഡങ്ങളും ഹരിതചട്ടവും പാലിച്ചാണ് പോളിംഗ് നടക്കുക

വി പാറ്റ് വോട്ടേഴ്സ് സ്ലിപ് തുടങ്ങി പോളിംഗിന് ആവശ്യമായ എല്ലാ വസ്തുക്കളുടേയും വിതരണം

ഇതിനായി വിപുലമായ സജ്ജീകരണങ്ങൾ ബൂത്തുകളിലും കൺട്രോൾ റൂമിലും പൂർത്തിയായിക്കഴിഞ്ഞു

മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്ന രാജ്യത്തെ ഏക ജില്ലയാവാനൊരുങ്ങുകയാണ് കണ്ണൂർ ജില്ല

ഇത് കൂടാതെ അസമിലും പശ്ചിമബംഗാളിലും മൂന്നാം ഘട്ട വോട്ടെടുപ്പും നാളെയാണ്

പരീക്ഷ നേരിടുന്ന വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും അധ്യാപകരുമായും വിശദമായ ചർച്ച നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കൂറിച്ചു വിദ്യാർത്ഥികൾക്ക് പരീക്ഷാക്കാലത്ത് സമ്മർദ്ദരഹിതമായ അന്തരീക്ഷം എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്

ജെ പിയുടെ സ്ഥാപക ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും

മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യുവരിച്ച സുരക്ഷ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു

ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സെർജിലാവ് റോവിന്റെ ഇന്ത്യൻ സന്ദർശനത്തിനിടയിൽ ഉണ്ടാകും

ഉത്തര റെയിൽവേയാണ് ഈ സർവ്വീസുകൾ നടത്തുന്നത്

മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രാജസ്ഥാനിൽ എത്തുന്നവർക്ക് ആർ

ആർ പരിശോധന നിർബന്ധമാക്കി

എന്നാൽ സാസംസ്കാരിക മന്ത്രാലയം ഇത് സംബന്ധിച്ച യാതൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ലെന്ന് പ്രസ് ഇന്ഫർമേഷൻ ബ്യൂറോ അറിയിച്ചു

പ്പെങ്കയ്യന്ായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

ബാലചന്ദ്രൻ അന്തരിച്ചു

മസ്തിഷ്ക ജ്ചരത്തെ തുടർന്ന് കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു അങ്കിൾ ബൺ എന്ന സിനിമയിലൂടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സിനിമാ രംഗത്ത് എത്തിയ ബാലചന്ദ്രൻ പവിത്രം പുനരിധവാസം ഇവൻ മേഘരൂപൻ കമ്മട്ടിപ്പാടം തുടങ്ങിയ ചിത്രങ്ങൾക്കും തൂലിക ചലിപ്പിച്ചു

സി സി